ഇന്ന് മുതൽ ആഴ്ച്ചയിൽ നാല് ദിവസം വാക്സിൻ നൽകും

ത ബ്രിസ്ബെയിനിൽ ഇന്ത്യക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്ങ്സിൽ ഓസ്ട്രേലിയക്ക് നാല് വിക്കറ്റ് നഷ്ടം

ആദ്യ ദിനത്തിലെ വിജയത്തെ തുടർന്ന് ഇതേ രീതിയിൽ വാക്സിൻ നൽകുന്നത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവന്തപുരത്ത് പറഞ്ഞു രംഭ സംസ്ഥാനത്ത് തുടർച്ചയായി കോവിഡ് വാക്സിൻ നൽകുന്നതിന് വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു

ബുധനാഴ്ച്ച കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെയ്പ്പ് ദിവസമായതിനാൽ അതിന് തടസമുണ്ടാകാതിരിക്കാനാണ് അന്ന് ഒഴിവാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകുന്നത് പൂർത്തിയായാൽ കോവിഡ് മുന്നണി പോരാളികളായ വിവിധ സേനാംഗങ്ങൾ പൊലീസുകാർ കോവിഡുമായി സഹകരിച്ച റവന്യൂ വകുപ്പ് ജീവനക്കാർ മുൻസിപ്പൽ വർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നിവർക്ക് വാക്സിൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു

അമേരിക്ക ബ്രിട്ടൺ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളെ പിന്നിലാക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് പ്രതിദിന കോവിഡ് വാക്സിൻ നൽകിയ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ഡോ മനോഹർ അഗ്നാനി ന്യൂഡൽഹിയിൽ പറഞ്ഞു

മൂന്ന് പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഇവരിൽ രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്തതായും എയിംസിൽ നിരീക്ഷണത്തിൽ തുടരുന്ന ഒരാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം അറിയിച്ചു പനി തലവേദന ഓക്കാനം എന്നീ ചെറിയ അസ്വസ്ഥതകളാണ് അധികവും റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു

ഇവയിൽ ചിലത് പരിപാടിയിൽ ഉൾപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ റോഡ് സുരക്ഷ മാസാചരണം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങ് കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി സഹമന്ത്രി ജനറൽ വി

റോഡ് സുരക്ഷയെ പറ്റി ചലച്ചിത്രം വാഗ അതിർത്തി മുതൽ കന്യാകുമാരി വരെ സേഫ് സ്പീഡ് ചലഞ്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഫ്ളാഗ് ഓഫ് റോഡ് സുരക്ഷ അവാർഡ് വിതരണം എന്നിവ നടക്കും സംസ്ഥാന ഗവൺമെന്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കും സെമിനാർ വാക്കത്തോൺ പോസ്റ്റർ പ്രദർശന മത്സരം എന്നിവയും ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടക്കും രംഭ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമല്ലാതെ മറ്റെന്ത് കാര്യമാണ് കർഷകർക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പറഞ്ഞു

രംഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും

സോണിയയുമായി രാവിലെ പത്തിനും രാഹുലുമായി വൈകീട്ട് മൂന്നിനുമാണ് കൂടിക്കാഴ്ച്ച യോഗത്തിൽ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവരും സംബന്ധിക്കും ഡിസിസികൾ പുനസംഘടിപ്പിക്കുന്ന കാര്യവും ചർച്ചാ വിഷയമായേക്കും

മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഇതുവരെ ഒരു കളിയും ജയിക്കാത്ത ആന്ധ്ര ആറു വിക്കറ്റ് ജയവുമായി സീസണിലെ ആദ്യ പോയിന്റ് നേടി മറ്റൊരു മത്സരത്തിൽ ഡൽഹിയെ അഞ്ച് വിക്കറ്റിന് ഹരിയാന തോൽപ്പിച്ചതോടെ കേരളത്തിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു നാളെ നടക്കുന്ന മത്സരത്തിൽ ഹരിയാനയോട് മികച്ച റൺറേറ്റിൽ ജയിച്ചാൽ മാത്രമേ കേരളത്തിന് ഗ്രൂപ്പ് ഇ യിൽ ഒന്നാംസ്ഥാനക്കാരായി ക്വാർട്ടറിൽ എത്താനാകു

എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം ജംഷഡ്പൂർ എഫ്സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ എ

കെ മോഹൻ ബാഗാൻ എഫ്

ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്ന് ചെന്നൈയിൽ എഫ് സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും

രുര സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ പുതിയതോ പുതുക്കിയതോ ആയ പരിശീലന കേന്ദ്രങ്ങൾക്ക് കായിക താരങ്ങളുടെ പേരിടാൻ കായിക മന്ത്രാലയം തീരുമാനിച്ചു ഇവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും കായിക സംസ്കാരം വളർത്തുന്നതിനുമാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ പറഞ്ഞു നിലവിൽ മത്സര രംഗത്ത് ഉള്ളതും വിരമിച്ചവരുമായ എല്ലാ കായിക താരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഭരണകൂടം ഉറപ്പ് വരുത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

റിപ്പോർട്ട് സഭയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലെ പരാമർശങ്ങൾ മന്ത്രി ഡോ

ഇത് സംബന്ധിച്ച് മന്ത്രി അവകാശലംഘനം നടത്തിയെന്ന കോൺഗ്രസ് നേതാവ് വി

സതീശന്റെ പരാതി നിയമസഭാ എത്തിക്സ് കമ്മറ്റിയുടെ പരിഗണനയിലാണ് രുഭ തൊഴിലാളികളുടെ ക്ഷേമവും സാമൂഹ്യ സുരക്ഷയും ആരോഗ്യപരിരക്ഷയും ഉത്തരവാദിത്തമായാണ് ഗവൺമെന്റ് കാണുന്നതെന്ന് മന്ത്രി ടി

കേരളത്തെ തൊഴിൽ സൌഹൃദ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണ്ണായക പങ്കാണ് തൊഴിലാളികൾ വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി ഇഎസ്ഐ ആശുപത്രിയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രും കാസർക്കോട് ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന സമഗ്രവും ശാസ്ത്രീയവുമായ നടപടികളുടെ ഭാഗമായാണ് ജല സുരക്ഷാ പദ്ധതികൾ യാഥാർഥ്യമാകുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു രാജ്യത്ത് ഭൂജല ശോഷണത്തിൽ റെഡ് ലിസ്റ്റിലുള്ള കാസർക്കോട് മഞ്ചേശ്വരം കാറഡുക്ക ബ്ലോക്കുകളിൽ രണ്ടു വർഷത്തിനകം ഭൂജല നിരപ്പ് വർധിപ്പിക്കാൻ പദ്ധതി വഴി സാധിച്ചെന്ന് മന്ത്രി കാസർക്കോട് അറിയിച്ചു രും നവീകരിച്ച കൊല്ലം പാലരുവി ടൂറിസം സെന്റർ സന്ദർശകർക്കായി തുറന്നു പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജു നിർവഹിച്ചു

ഐ മധ്യകേരള മഹായിടവകയുടെ പതിമൂന്നാമത് ബിഷപ്പായി ഡോ

ചെറിയാൻ ഇന്ന് സ്ഥാനാരോഹണം ചെയ്യും കോട്ടയം ചാലുകുന്നിലെ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ രാവിലെ എട്ടിന് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ആരംഭിക്കും

ഐ സഭാ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ്

റസാലം മാർതോമാ സഭാധ്യക്ഷൻ ഡോ തിയഡോഷ്യസ് മാർതോമാ മെത്രാപ്പൊലീത്താ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും രുഭ കൊല്ലം പത്തനാപുരത്ത് കെ

ഗണേഷ് കുമാർ എംഎൽഎ യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൊലീസ് നേരിട്ട രീതിയിൽ പ്രതിഷേധിച്ച് പത്താപുരം പഞ്ചായത്തിൽ കോൺഗ്രസ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു കൊല്ലത്ത് കൊബി ഗണേഷ് കുമാർ എംഎൽഎ യുടെ വാഹനത്തിന് നേരെ ഇന്നലെ കല്ലേറുണ്ടായി അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു രുമ റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച താലൂക്ക് തല ഓൺലൈൻ അദാലത്തുകളിൽ ഏറ്റവും കൂടുതൽ പരാതികളിൽ തീർപ്പുകൽപ്പിച്ച് എറണാകുളം ജില്ല ഒന്നാമതെത്തി